ചരിത്രപരമായ നിയമ നിർമാണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്ര സിങ് തോമർ പ്രതിഷേധിച്ച് പ്രതിപക്ഷം

നാല് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പലയിടത്തും നാശനഷ്ടം

ഐപിഎല്ലിൽ ഇന്നത്തെ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് കിംഗ്സ് ഇലവൻ പഞ്ചാബിനെ നേരിടും

എന്നാൽ പ്രതിപക്ഷം പ്രതിഷേധം തുടരുന്നു

ഇതു വഴി മികച്ച വില ഉറപ്പാക്കാനാകുമെന്നാണ് വിലയിരുത്തൽ ഈ വർഷം ജൂണിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന രണ്ട് ഓർഡിനൻസുകൾക്ക് പകരമാണ് ബില്ലുകൾ കാർഷികോൽപ്പന്ന കമ്പോള കമ്മിറ്റിയുടെ മേഖലയ്ക്കു പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഫീ സോ സെസോ ലെവിയോ ചുമത്തുന്നതിൽ നിന്ന് സംസ്ഥാന സർക്കാരുകളെ ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആന്റ് കൊമേഴ്സ് ബിൽ വിലക്കുന്നു ഫാർമേ ഴ്സ് എംപവർമെന്റ് ആന്റ് പ്രൊട്ടക്ഷൻ എഗ്രിമെന്റ് ബിൽ കരാർ കൃഷിക്കുള്ള ചട്ടക്കൂട് വ്യക്തമാക്കുന്നതാണ് കൃഷി തുടങ്ങുന്നതിന് മുമ്പുതന്നെ കർഷകനും കച്ചവടക്കാരനും തമ്മിൽ ഉടമ്പടി ഉണ്ടാക്കാനാണ് വ്യവസ്ഥ ചരിത്രപരമായ നിയമനിർമാണമാണ് ഇതെന്ന് ബില്ലുകൾ രാജ്യസഭയി അവതരിപ്പിച്ച് കൃഷിമന്ത്രി നരേന്ദ്ര സിങ് തോമർ പറഞ്ഞു കാർഷികോൽപ്പന്ന കമ്പോള കമ്മിറ്റികളുടെ നിയന്ത്രണത്തിനപ്പുറം രാജൃത്ത് എവിടെയും സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കർഷകർക്ക് അവസരമൊരുങ്ങും ഇത് കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു

കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന ബില്ലുകൾ പിൻവലിക്കണമെന്ന് സി

കെ നേതാവ് തിരു ച്ചി ശിവ ടിഎം സി യിലെ ഡെറക് ഒബ്റിയൻ കോൺഗ്രസിലെ കെ സി വേണുഗോപാൽ എന്നിവരും ബിൽ സെലക്റ്റ് കമ്മിറ്റിക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടു

ജെ

ലോക്സഭ പാസാക്കിയ കർഷക ബില്ലുകൾ ഇന്ന് രാജ്യസ്ട്രിൽ പരിഗണിക്കുന്നതിനാലാണിത് നിരവധി പ്രതിപക്ഷി കക്ഷികൾ ബില്ലിനെ എതിർത്ത് രംഗത്തെത്തിയിരിക്കുകയാണ്

കപട കമ്പനികളെ പൂട്ടിക്കാൻ സർക്കാർ പ്രത്യേക ഉദ്യമം നടത്തിയതായി അദ്ദേഹം പറഞ്ഞു ബിസിനസോ ആസ്തിയോ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികൾ കള്ളപ്പണം വെളുപ്പിക്കലിനും നികുതി വെട്ടിപ്പിനും ഉപയോഗിക്കുന്നതായി വൃക്തമായ സാഹചരൃത്തിലാണ് നടപടി

കേന്ദ്ര സഹമന്ത്രി അശ്വനി കുമാർ ചൌബേ രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വൃക്തമാക്കിയത് ആഗോളതലത്തിൽ നടത്തുന്ന രണ്ട് വാക്സിൻ പരീക്ഷണങ്ങളിൽ ഐസിഎംആർ ഉം സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും പങ്കാളികളാണെന്നും അദ്ദേഹം വൃക്തമാക്കി അമേരിക്കൻ കമ്പനിയായ നോവാക്സിന്റെ വാക്സിൻ പരീക്ഷണം ഒക്ടോബർ രണ്ടാം വാരത്തോടെ ഇന്ത്യയിൽ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിക്കുന്ന വാക്സിൻ മൂന്നാം ഘട്ട പരീക്ഷണത്തിലാണ് എന്നും കേന്ദ്ര സഹ മന്ത്രി അറിയിച്ചു

കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി അശ്വിനി കുമാർ ചിട്ടബ് രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ് ഇക്കാര്യം അറിയിച്ചത് രാജ്യത്തെ ലോക്ക്ഡൌണിൽ ഏർപ്പെടുത്തിയിരുന്ന നാലുമാസം ഫലപ്രദമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു

കർണാടകയിൽ നിന്ന് എതിരില്ലാതെയാണ് അദ്ദേഹം സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്

ഉത്തർ പ്രദേശ് ജാർഖണ്ഡ് എന്നീ അയൽ സംസ്ഥാനങ്ങളുമായുള്ള ഗതാഗത ബന്ധം മെച്ചപ്പെടുത്തുന്ന പദ്ധതി ബിഹാറിനുള്ളിലെ യാത്രാ സൌകര്യവും വലിയ തോതിൽ വികസിപ്പിക്കും

ബീഹാർ ജാർഖണ്ഡ് മിധ്യ പ്രദേശ് ഒഡിഷ രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നീ സ്റ്സ്ഥാനങ്ങളിലാണ് പദ്ധതി പ്രകാരം തൊഴിൽദിനങ്ങൾ സൃഷ്ടിച്ചത് ് കേന്ദ്ര റയിൽവേ മന്ത്രി പിയുഷ് ഗോയലിന്റെ സൂക്ഷ്മമായ നിരീക്ഷണത്തിന് കീഴിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്

പൊതു സ്വകാര്യ മേഖലകളിലായി രണ്ടായിരത്തോളം പരിശോധനാ ലാബുകൾ ആണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത്

വടക്കൻ ജില്ലകളിൽനിന്ന് എടുത്ത സാമ്പിളിൽനിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം ഒഡിഷ കർണാടകം മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രോഗാണുക്കളാണ് കൂടുതലായി കണ്ടത്

മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ഇടുക്കി എന്നീ നാല് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് പുതിയ ന്യൂനമർദം രൂപപ്പെടുമെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ എന്നിവ കണക്കിലെ ടുത്ത് പ്രത്യേക ജാഗ്രതാ നിർദേശം നൽകി

റെഡ് അലർട്ട് നിലവിലുള്ള ജില്ലകളിൽ ദേശീയ ദുരന്തനിവാരണ സേനയെയും വിനൃസിച്ചു

ക്വർട്ടർ ഫൈനലിൽ അർജന്റീനൻ താരം ഡിയേഗോ ഷാർട്സ്മാനോട് ഏറ്റ തോൽവിയാണ് നൃദാലിനെ പുറത്താക്കിയത്

സെമിയിൽ കനേഡിയൻ താരം ഷാപ്പോവാ ലോവാണ് ഷാർട്സ്മാന്റെ എതിരാളി

ഇന്നലെ നടന്ന ഉദ്ഘാടന് മത്സരത്തിൽ ചാമ്പ്യൻമാരായ മുംബൈ ഇന്ത്യൻസിനെ ചെന്നൈ സൂപ്പർ കിംഗ്സ് അഞ്ച് വിക്കറ്റിന് പരാജയപ്പെടുത്തി